മല യോരമേഖലയിൽ പലയിടങ്ങളിലും ഉരുൾപ്പൊട്ടലുണ്ടായി കണ്ണൂരിൽ രണ്ട് മരണം ഇടുക്കി അടിമാലിക്കടുത്ത് മണ്ണിടി ഞ്ഞ് കുടുംബത്തിലെ ആറുപേരെ കാണാതായി വയനാട് വൈത്തിരിയിലും കോഴിക്കോട് കണ്ണപ്പൻകു ണ്ടിലുമായി രണ്ട്പേരെ കാണാതായി

ഇടമ ലയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു കാലവർഷക്കെടുതിയിൽ നാൾനഷ്ടമുണ്ടായ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രസംഘം ഇന്ന് സന്ദർശിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്ത് കാലവർഷത്തിൽ കനത്ത നാശനഷ്ടം മല യോരമേഖലയിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി കണ്ണൂ രിൽ രണ്ട് മരണം ഇടുക്കി അടിമാലിക്കടുത്ത് മണ്ണിടിഞ്ഞ് കുടും ബത്തിലെ ആറുപേരെ കാണാതായി വയനാട് വൈത്തിരിയിലും കോഴിക്കോട് കണ്ണപ്പൻകു ണ്ടിലുമായി രണ്ട്പേരെ കാണാതായി

കൊട്ടിയൂർ പാൽപ്പുരത്തും പൊയ്യമലയിലും ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായി

മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിൽ ചെട്ടിയാർ പാറയിൽ വെള്ള ക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആറ് പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട് നാട്ടുകാരും രക്ഷാസേന്ന്യും തീരച്ചിൽ തുടരുകയാണ് വയനാട് വൈത്തിരിയിൽ ഉരുൾപൊട്ടി വൈത്തിരി പൊലീസ് സ്റ്റേഷൻ ഭാഗികമായി തകർന്നു

പൊലീസ് സ്റ്റേഷ്യന് സമീപത്തെ ലക്ഷംവീട് കോളനി യിൽ മണ്ണിനടിയിൽ പ്പെട്ട സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നതിന് ശ്രമം തുടരുന്നു റോഡിലേക്ക് മണ്ണൊലിച്ചെത്തിയതിനെ തുടർന്ന് കോഴി ക്കോട് മൈസൂർ പാതയിൽ വാഹനഗതാഗതം പൂർണമായി തടസ്സ പ്പെട്ടു കുറ്റ്യാടി ചുരത്തിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ചുര ത്തിലെ ഒൻപതാം വളവിന് സമീപമാണ് ഇന്നലെ രാത്രി മണ്ണിടിച്ചി ലുണ്ടായത് നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് മലമ്പുഴ ഡാമിന് സമീപം കവ പരച്ചതി എലിവാൽ പ്രദേശങ്ങ ളിലും ഉരുൾപൊട്ടലുണ്ടായി കോഴിക്കോട് മലയോര മേഖലയായ കണ്ണപ്പൻകുണ്ടിൽ ഉരുൾപൊട്ടി ഒരാളെ കാണാതായി മട്ടിക്കുന്ന് സ്വദേശി റിജിത്തിനെ യാണ് കാണാതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മലയോര മേഖലയിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടി കാളിക്കാവ് അടക്കാക്കുണ്ട് മാഞ്ചോലയിലും ഊർങ്ങാട്ടിരി കൊടുമ്പുഴ വനത്തിലുമാണ് ഉരുൾപൊട്ടിയത്

കൊടുമ്പൊ യിൽ നിരവധി വീടുകൾ വെളളത്തിലാണ് കാളിക്കാവിൽ പുഴ കരകവിഞ്ഞ് കൃഷിയിടങ്ങൾ കൂട്ടത്തോടെ വെളളത്തിലായി

വണ്ടൂരിൽ ഫാമിൽ വെളളം കയറി പതിനേഴായിരം കോഴികുഞ്ഞു ങ്ങൾ ചത്തു പാലക്കാട് ഗായത്രി പുഴയിൽ ഒഴുക്കിൽ പെട്ട് കുരുത്തിക്കോട് സ്വദേശി രാജനെ കാണാതായി

കക്കി ആനത്തോട് സംഭരണികളുടെ ഷട്ടറുകൾ ഇന്ന് രാവിലെ തുറക്കുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു

കൊല്ലം തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ ഇന്ന് രാവിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടിവരുമെന്നും കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്തനിവാർണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ അറിയിച്ചു ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് ്ഹൈറേഞ്ച് മേഖല ഒറ്റപ്പെട്ട നിലയിലാണ് ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകളിൽ കനത്ത നാശനഷ്ടങ്ങളാണുണ്ട്ടായി കൊച്ചി ധനുഷ്ക്കോടി ദേശീയപാതയിലും കോതമംഗലം ഇടുക്കി പാമ്പള സംസ്ഥാന പാതയിലും ഹൈറ്റേഞ്ചിലെ പത്തോളം റോഡുകളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തിട്സ്സപ്പെട്ടു പാലക്കാട് ജില്ലയിൽ പുഴ കര കവിഞ്ഞതിനെ തുടർന്ന് അക മലവാരത്തെ നിരവധി വീടുകളിൽ വെളളം കയറി കൽപ്പാത്തി ആണ്ടിമഠം ഭാഗത്ത് പത്ത് കുടുംബത്തെ ദുരിതാശ്വാസ ക്യാമ്പി ലേക്ക് മാറ്റിപാർപ്പിച്ചു കണ്ണൂർ ജില്ലയിലെ മലയോരങ്ങളിൽ മഴ ഇന്നും തുടരുകയാ ണ്

കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞു

അന്തർസംസ്ഥാന പാതയായ ഇരിട്ടി വിരാജ്പേട്ട റോഡിൽ ഗതാഗതം പൂർണമായും നിർത്തിവെച്ചു മലപ്പുറം ഉറു ങ്ങാട്ടിരി റോഡിൽ വെളളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിലെ പ്രഫ ഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്കും ഇന്ന് ജില്ലാകലക്ടർ അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിലെ പ്രഫഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കല്ക്ടർ ഇന്ന് അവധി നൽകി

മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കൊണ്ടോട്ടി താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല ദേവികുളം താലൂക്കുക ളിലെ പ്രൊഫ്ഷണൽ കോളജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപ നങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും കൊല്ലം ജില്ലയിലെ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി നാദാപുരം കുന്നുമ്മൽ പേരാമ്പ ബാലുശ്ശേരി മുക്കം ഉപവിദ്യാഭ്യാസ ജില്ലകളിലെ പ്രൊഫ ഷണൽ കോളജ് ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി ഇന്ന് നടത്താനിരുന്ന ഹയർ സെക്കന്ററി ഒന്നാംവർഷ ഇംപ്രൂ വ്മെന്റ് സപ്തിമെന്ററി പരീക്ഷകൾ മാറ്റിവെച്ചതായി ഡയറക്ടർ അറി യിച്ചു

കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷ കളും മാറ്റിവെച്ചു കാലവർഷ കെടുതിയിൽ വൻ നാശനഷ്ടമുണ്ടായ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ ഇന്ന് കേന്ദ്ര സംഘം സന്ദർശിക്കും രാവിലെ ജില്ലാ കലക്ടറുമായി ചർച്ച നടത്തിയ ശേഷ്ടര കട്ടിപ്പാറയിലെ കരിഞ്ചോല മല വയനാട് ചുരം റോഡ് കോടട്ടേഞ്ചേരി തിരുവമ്പാടി മുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തുക സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഇന്ന് കനത്തമ ഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് രാജ്യസഭാ ഉപാധ്യക്ഷനെ ഇന്ന് തെരഞ്ഞെടുക്കും എൻഡി എയിലെ ഹരിവംശും സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ബി കെ ഹരിപ്രസാദും തമ്മിലാണ് മത്സരം

ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇംഗ്ലണ്ടിലെ ലോഡ്സിൽ ഇന്നു തുടങ്ങും ഒന്നാം ടെസ്റ്റിൽ വിജയിച്ച ിംഗ്ലണ്ടിനെതിരെ വിജ യിക്കാനുറച്ചാണ് ടീം ഇന്ത്യ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത് ബാറ്റിംഗ് ശക്തിപ്പെടുത്തി വെല്ലുവിളി ഉയർത്താനാവും നായകൻ വിരാട് കോഹ്ലിയുടെ ശ്രമം

കൊച്ചി മുനമ്പത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കാണാതായ ഒൻപത് മത്സൃ തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനായില്ല ഇവർക്കായി തിര ച്ചിൽ ഊർജ്ജിതമാക്കാൻ മന്ത്രി ജെ മേഴ്സികുട്ടിയമ്മ നിർദ്ദേശം നൽകി മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ചേർന്ന അവലോ കന യോഗത്തിലാണ് നിർദേശം

നാവികസേന തീരസംരക്ഷണ സേന എന്നിവയുടെ അഞ്ച് കപ്പലുകളും മൂന്ന് ഹെലികോപ്റ്ററു കളും തിരച്ചിൽ തുടരുകയാണ് അപകടമുണ്ടാക്കിയതായി സംശയിക്കുന്ന കപ്പൽ മംഗലാപു രത്ത് അടുപ്പിക്കാൻ നാവികസേന നിർദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു സങ്കുചിത മത വർഗീയ താത്പര്യങ്ങൾക്കെതിരെ വിശാലമായ മാനവിക മൂല്യങ്ങളുള്ള സിനിമകളിലൂടെ പ്രതിരോധം സൃഷ്ടിക്കാൻ ചലച്ചിത്ര പ്രതിഭകൾക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ജമ്മു കശ്മീരിലെ ബാരാമുളള ജില്ലയിൽ വനപ്രദേശത്ത് നാല് ഭീകരരെ സുരക്ഷാസേന വധിച്ചും പ്രനത്തിൽ ഭീകരരുണ്ടെന്ന വിവ രത്തെ തുടർന്ന് തെരച്ചിൽ നട്ടത്തുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലി ലാണ് സൈന്യം ഭീകരരെ വധിച്ചത്

സപ്ലൈകോ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഓണം ബ ക്രീദ് മാർക്കറ്റുകളും ജില്ലാഫെയറുകളും ആരംഭിക്കും സംസ്ഥാ നതല ഉദ്ഘാടന്നം ഇന്ന് വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് മുഖ്യ മന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

മുൻമന്ത്രി കെ എം മാണിക്കെതിരായ ബാർകോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ്കോടതിയിൽ വാദം പൂർത്തിയായി

വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് സ്വീകരിക്കുന്നതും തുടരന്വേഷണം നടത്തുന്നതും കോടതി നേരിട്ട് തെളിവ് സ്വീകരിക്കുന്നതും സംബന്ധിച്ച് നിയമ സാധുത പരിശോധിക്കാനാണ് കേസ് മാറ്റിയത് കാസർകോട് എൻമകജെ പഞ്ചായത്ത് ഭരണവും ബിജെപിക്ക് നഷ്ടമായി യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ എൽഡിഎഫ് പിന്തുണച്ചതോടെയാണ് ബിജെപിക്ക് ഭരണം നഷ്ട മായത് വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്ചാസ പ്രമേയം ഇന്ന് പരി ഗണിക്കും കഴിഞ്ഞദിവസം കാസർകോട്ടെ കാറടുക്ക പഞ്ചാ യത്തിൽ ബിജെപിക്ക് സമാനമായ രീതിയിൽ ഭരണം നഷ്ടപ്പെട്ടി രുന്നു അട്ടപ്പാടിയിൽ നിന്ന് ചന്ദനം കടത്തിയ രണ്ടുപേരെ വനംവ കുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി മണ്ണാർക്കാട് ചിറക്കൽപ്പടി ഷഫീർ കൈതച്ചിറ ഹക്കീം എന്നിവരാണ് പിടിയിലായത്